സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വിശപ്പുരഹിത പദ്ധതിയിലെ ആദ്യ ജനകീയ ഹോട്ടൽ ആലപ്പുഴ മണ്ണഞ്ചേരി ബസ്സ്റ്റാൻഡിന് സമീപം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

വണ്ടൂർ ക്യാൻസർ ഹോസ്പിറ്റൽ കണ്ണൂരിലെ സീതാലയം വന്ധ്യതാ നിവാരണ ഹോസ്പിറ്റൽ എന്നിവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുമെന്നും ആയുഷ് കെയറിന് സഹായമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു

പകർച്ചവ്യാധികൾക്കെതിരായി പ്രതിദിന പ്രതിരോധമാണ് നമുക്ക് ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു നാദാപുരം താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ദേദ ആരോഗ്യജാഗ്രത പകർച്ചവ്യാധി നിയന്ത്രണ കർമ്മപരിപാടിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം ചെറുതോണിയിൽ മന്ത്രി എം

ആരോഗ്യ രംഗത്ത് കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു രുര ഗവൺമെന്റ് പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു കോഴിക്കോട് ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുയായിരുന്നു മന്ത്രി

വാഷിംഗ്ടൺ സ്റ്റേറ്റിലാണ് ഇവർ മരിച്ചതെന്ന് യു എസ് പ്രസിഡണ്ട് ഡൊണാൾഡ് ട്രംപ് വൈറ്റ്ഹൌസിൽ വാർത്താലേഖകരെ അറിയിച്ചു

അമേരിക്കക്കാർക്ക് അന്താരാഷ്ട്ര യാത്രാനിയന്ത്രണവും ട്രംപ് പ്രഖ്യാപിച്ചു ചൈനയ്ക്ക് പുറത്ത് ആറായിരത്തിലേറെ പേർക്ക് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു

കൊറോണ വൈറസ് ബാധ വ്യാപിക്കുന്നതു തടയാൻ ഇറാനുമായി ബന്ധം തടയുന്നതിന് ഗൾഫ് രാജ്യങ്ങൾ സത്വര നടപടികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖത്തർ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ മക്കയിലും മദീനയിലും ആറ് പ്രവേശിക്കുന്നതിന് സൌദിഅറേബ്യ നിരോധനം ഏർപ്പെടുത്തി ദേദ ലിബിയയിൽ നിന്ന് വന്ന യുവാവിനെ കാസർകോട് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചു ചുമയും തൊണ്ടവേദനയും അനുഭവപ്പെടുന്ന ഇയാളുടെ തൊണ്ടസ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ദ്ദേ കോട്ടയം ചങ്ങനാശേരി തൃക്കൊടിത്താനത്തെ അഗതിമന്ദിരത്തിലെ അന്തേവാസി മരിച്ചത് ന്യൂമോണിയ ബാധ മൂലമെന്ന് പ്രാഥമിക റിപ്പോർട്ട് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളജിൽ മരിച്ച അന്തേവാസിയുടെ പോസ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം ന്യുമോണിയയാണെന്ന് പറയുന്നു

നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ആരോഗ്യ വകുപ്പും ജില്ലാ ഭരണകൂടവും അന്വേഷണം നടത്തുന്നുണ്ട് രാമ സംസ്ഥാന ഗവൺമെന്റ് കൊട്ടിഘോഷിക്കുന്ന ലൈഫ് പദ്ധതിയിൽ കേന്ദ്രവിഹിതം എത്രയാണെന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി

പാലക്കാട് നഗരസഭയുടെ വിവിധ അമൃത് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിഹിതം എത്രയെന്ന് പറഞ്ഞാൽ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന പരാതിയുടെ സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ദേദ ലൈഫ് പദ്ധതിയിലൂടെ സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു ലൈഫ് പദ്ധതിയിൽ നഗരപരിധിയിൽ മൂന്നു ലക്ഷം രൂപയെന്നത് നാലു ലക്ഷമാക്കി ഉയർത്തിയപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് വിഹിതം അൻപതിനായിരം രൂപ മാത്രമണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു സംസ്ഥാന ഗവൺനമെന്റിന് ഒരു രൂപ പോലും അധികം ചെലവില്ലെന്നും പിഎംഎവൈ റൂറലും അർബനും അട്ടിമറിച്ചാണ് ലൈഫ് ഭവനപദ്ധതി നടപ്പാക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു രുദ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ലൈഫ് മിഷൻ പദ്ധതി ശുദ്ധ തട്ടിപ്പാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആരോപിച്ചു ലൈഫ് മിഷനിലൂടെ രണ്ട് ലക്ഷം വീടുകളുടെ പൂർത്തീകരണം നടന്നെന്നാണ് മുഖ്യമന്ത്രിയും സി പി ഐ എമ്മും അവകാശപ്പെടുന്നത് എന്നാൽ പാവപ്പെട്ടവരും ദരിദ്ര പട്ടികജാതി വിഭാഗക്കാരും ഇപ്പോഴും ലിസ്റ്റിന് പുറത്താണെന്ന് കൊടിക്കുന്നിൽ തിരുവനന്തപുരത്ത് പറഞ്ഞു

എ ഗ്രൂപ്പിൽ ഇന്ത്യയുടെ തുടർച്ചയായ നാലാം വിജയമാണിത്

ക്രൈസ്റ്റ് ചർച്ചിൽ ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ന്യൂസിലാൻഡിന് ബാറ്റിംഗ് തകർച്ച

ദേദ ഭുവനേശ്വറിൽ ഖേലോ ഇന്ത്യ സർവകലാശാല ഗെയിംസിൽ കേരള സർവകലാശാലയുടെ പി ഒ സയനയ്ക്ക് ഇരട്ട സ്വർണ്ണം

കേരള സർവകലാശാലയ്ക്ക് രണ്ട് സ്വർണ്ണം ലഭിച്ചു രുര കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും വൈകീട്ട് നാല് മണിക്കാണ് കിക്കോഫ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഗോകുലം എഫ് സിയും കേരള പോലീസും ഏറ്റുമുട്ടും തിരൂർ രാജീവ്ഗാന്ധി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ സാറ്റ് തിരൂർ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും

രുമ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോൾ ആറാം സീസണിലെ ആദ്യസെമിയിൽ ചെന്നൈയിൻ എഫ് സിയ്ക്ക് ജയം ചെന്നൈയിൽ നടന്ന ആദ്യപാദ മത്സരത്തിൽ ഗോവ എഫ് സിയെ ഒന്നിനെതിരെ നാല് ഗോളിനാണ് ചെന്നൈയിൻ എഫ് സി തോൽപ്പിച്ചത് രുര ലീഗ് ഫുട്ബാളിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഐ സ്റ്റേഡിയത്തിൽ നടന്ന ഗോകുലം കേരള മിനർവ പഞ്ചാബ് മത്സരം ഇരുടീമുകളും ഓരോ ഗോൾ അടിച്ച് സമനിലയിൽ പിരിഞ്ഞു

രുര കോഴിക്കോട് നടക്കുന്ന ഫിയാസ്റ്റോ അഖിലേന്ത്യ ബാസ്ക്കറ്റ്ബാൾ ടൂർണമെന്റിൽ ബാങ്ക് ഓഫ് ബറോഡക്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനും ജയം

സിയെയാണ് ബാങ്ക് ഓഫ് ബറോഡ തോൽപ്പിച്ചത്

ബിയെ യാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പരാജയപ്പെടുത്തിയത് ദരര റൺ ഫോർ യൂണിറ്റി എന്ന സന്ദേശവുമായി കായികവകുപ്പ് സംഘടിപ്പിക്കുന്ന കേരള മാരത്തണിന്റെ ആദ്യമത്സരം കണ്ണൂരിൽ തുടങ്ങി നാല് നാല് വിഭാഗങ്ങളിലായാണ് മത്സരം നടക്കുന്നത്

രുമ ചെറുപ്പക്കാർക്കിടയിൽ കായികമേഖലയോട് ആഭിമുഖ്യം വളരണമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു യൂത്ത് ക്ലബ്ബുകൾക്ക് നെഹ്റു യുവകേന്ദ്രയുടെ സ്പോർട്സ് കിറ്റ് വിതരണം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുരളീധരൻ ദേദ തൃശൂർജില്ലയിലെ ആദ്യത്തെ ശീതീകരിച്ച സഞ്ചരിക്കുന്ന പഴം പച്ചക്കറി വാഹനം മന്ത്രി വി എസ് സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രാരംഭഘട്ടത്തിൽ നഗരപരിധിയിലെ ഫ്ളാറ്റുകളിലും റെസിഡന്റ്സ് കോളനികളിലൂമാണ് വാഹനത്തിന്റെ സേവനം ലഭ്യമാവുക

എല്ലാ വകുപ്പുകളും തികഞ്ഞ ജാഗ്രതയോടെ ചുമതലകൾ നിർവഹിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു രദേ ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിന് നടപടി ആരംഭിച്ചുവെന്നും വാഴത്തോപ്പിലെ പട്ടയത്തിന്റെ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ജില്ലാ വികസന സമിതിയിൽ ജില്ലാ കലക്ടർ എച്ച് ദിനേശൻ അറിയിച്ചു ജില്ലയിലെ മറ്റ് മേഖലകളിൽ പട്ടയം നൽകിയിട്ടും കഞ്ഞിക്കുഴി വാഴത്തോപ്പ് ഇടുക്കി വില്ലേജുകളിൽ പട്ടയം നൽകാൻ കഴിയാതിരുന്നത് ഡീൻ കുര്യാക്കോസ് എംപിയും ഇ എസ് ബിജിമോൾ റോഷി അഗസ്റ്റിൻ എന്നീ എംഎൽഎമാരും ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത് രുദ ചെങ്ങന്നൂരിനും ഏറ്റുമാനൂരിനുമിടയിൽ ഇരട്ടപ്പാത നിർമ്മാണ പുരോഗതി സതേൺ റെയിൽവെ ജനറൽ മാനേജർ ജോൺ ജോസഫ് വിലയിരുത്തി

രേര മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് എറണാകുളം ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ഭവനരഹിതർക്കായി റോട്ടറിക്ലബ് വീടുകളുടെയും ആസ്റ്റർ മെഡിസിറ്റി നിർമ്മിച്ച നൂറ് വീടുകളുടെയും താക്കോൽദാനം രണ്ടു ചടങ്ങുകളിലായി മുഖ്യമന്ത്രി നിർവഹിക്കും

ദേശ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളംവഴി കടത്താൻ ശ്രമിച്ച ഒരുകോടി രൂപയുടെ സ്വർണം റവന്യൂ ഇന്റലിജൻസ് വിഭാഗം പിടികൂടി മലപ്പുറം പാലേമാട് അക്കാട്ടിൽ സജീർ മോനെ അറസ്റ്റ് ചെയ്തു